ഭാരത്നെറ്റ് പദ്ധതിയിൽപ്പെടുത്തി എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്റ്റിവിറ്റി നൽകുമെന്ന് കേന്ദ്രം

പിമാർ മുഖേന കേന്ദ്രത്തിൽ സമ്മർദ്ദം

വെസ്റ്റിന്റീസുമായി ഏറ്റുമുട്ടും

ഇരുരാജ്യങ്ങൾക്കും താത്പര്യമുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഇന്ത്യയും ജപ്പാനും തമ്മിൽ ഊഷ്മളമായ ബന്ധമാണുള്ളതെന്നും ഭാവിയിലും അത് തുടരുമെന്നും പ്രധാനമുന്ത്രിയുടെ ഓഫീസ് വൃക്തമാക്കി ഈ വർഷം ഷിൻസോ ആബെയുടെ ഇന്ത്യൻ സന്ദർശനത്തിനായി കാത്തിരിക്കുകൃയാണ്ണെന്ന് ശ്രീ

ഉച്ചക്കോടിയ്ക്കിടെ മറ്റ് രാജ്യങ്ങളിലെ നേതാക്കളുമായും പ്രധാന്ടമന്ത്രി ചർച്ച നടത്തുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രം്പുമായി നാളെ കൂടിക്കാഴ്ച നടത്തും

ഉച്ചകോടിയിൽ പ്രധാനമന്ത്രിയുടെ പ്രതിനിധിയായി സംബന്ധിക്കുന്നത് ശ്രീ

കള്ളപ്പണം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഭീകരത തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യ നിലപാട് ഉച്ചകോടിയിൽ വ്യക്തമാക്കും

തുടർന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനഗറിലെ ഹെഡ്കാട്ടേഴ്സിൽ ഉന്നതതല യോഗം ചേർന്നു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 നേരത്തെ ശ്രീ അമിത്ഷാ അനന്ത്നാഗിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ഇൻസ്പെക്ടർ അർഷാദ്ഖാന്റെ വീട് സന്ദർശിച്ച് കുടുംബത്തെ അനുശോചനം അറിയിച്ചു അർഷാദ്ഖാന്റെ ധീരതയിൽ രാജ്യം അഭിമാനിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി പിന്നീട് ട്വീറ്ററിൽ കുറിച്ചു ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അർഷാദ് പിന്നീട് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു സർപഞ്ച് അംഗങ്ങളുമായും ശ്രീ

ദിദിന സന്ദർശനത്തിനായി അദ്ദേഹം ഇന്നലെയാണ് ശ്രീനഗറിലെത്തിയത് ആഭ്യന്തരമന്ത്രിയായ ശേഷം ശ്രീ അമിത്ഷായുടെ ആദ്യ ജമ്മുകശ്മീർ സന്ദർശനമാണിത്

പ്രോയ്സ് ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ വിവര സാങ്കേതിക ഇലക്ട്രോണിക്സ് വകുപ്പ് മുന്തി രവിശങ്കർ പ്രസാദാണ് ഇക്കാര്യം പറഞ്ഞത്

അന്ന് ഒരുലക്ഷം ഗ്രാമപഞ്ചായത്തുകളിൽ സേവനം ലഭ്യമാക്കി രണ്ടാംഘട്ടം നടപ്പിലാക്കി വരികയാണ്

രണ്ടാം തവണ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷമുള്ള ശ്രീ മോദിയുടെ ആദ്യത്തെ മൻ കി ബാത് പ്രക്ഷേപണ പരിപാടിയാണ് ഇത്

പരിക്കേറ്റവർക്ക് സൌജനൃ ചികിത്സ ഉറപ്പുവരുത്തും

ലോക്സഭയിൽ എഴുതി നൽകിയ മറുപടിയിൽ സുരക്ഷാസമിതിയുടെ പ്രീഷ്ക്കരണത്തിനുള്ള ശ്രമങ്ങളിൽ ഇന്ത്യ ക്രിയാത്മകമായി പങ്കെടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന പരിശ്രമങ്ങളുടെ ഫലമായാണ് ഇന്ത്യയുടെ ഐക്യരാഷ്ട്ര സഭയിലെ സ്ഥിരാംഗത്വത്തിന് കൂടുതൽ ലോകരാഷ്ട്രങ്ങൾ പിന്തുണ നൽകുന്നതെന്നും ശ്രീ

കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള മറുപടി പ്രസംഗത്തിൽ രാജ്യസഭയിലാണ് പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞത് തങ്ങളെ തെരെഞ്ഞെടുത്തയച്ച ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റാൻ പാർലമെന്റംഗങ്ങൾ കൂട്ടായി പ്രവർത്തിക്കണം ലോക്സഭ തടസമില്ലാതെ പ്രവർത്തിക്കാൻ പ്രതിപക്ഷം അനുവദിക്കണം അഞ്ച് ട്രില്യൺ ഡോളർ മൂല്യമുള്ള സമ്പദ് വൃവസ്ഥ ആകുകയാണ് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത് സാങ്കേതിക് വിദ്യ ഡിജിറ്റൽ ഇടപാട് ആധാർ ജി

അക്രമം കേരളത്തിലായാലും പശ്ചിമ ബംഗാളിലായാലും ജാർഖണ്ഡിലായ്യാവും ഒരേ കണ്ണുകൊണ്ട് കാണണം

ആയുഷ്മാൻ ഭാരത് ആരോഗ്യര ംഗത്ത് പാവ്പപ്പെട്ടവർക്കായി കൊണ്ടു വന്ന വിപ്ളവമാണ് ബീഹാറിൽ കുട്ടികൾ മസ്തിഷ്ക ജരം ബാധിച്ച് മരണമടഞ്ഞത് നിർഭാഗ്യകരമായ സംഭവമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ബീഹാറിന് സ്ഥിതിഗതികൾ നേരിടാൻ എല്ലാ സഹായവും നൽകുമെന്നും ശ്രീ

പി മാർ മുഖേന കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു

കേന്ദ്രഗവൺമെന്റുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളിൽ തുടർബന്ധം സാധ്യമാക്കുന്നതിന് ഡൽഹിയിൽ ്പ്രത്യേക ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

തോൽവികളാൽ കാലിടറിയ വിന്റീസിന് ഇന്നത്തെ മത്സരത്തിലും പരാജയപ്പെട്ടാൽ പുറത്ത് പോകേണ്ടി വരും

കളിയിൽ നിന്ന് പുറത്താകില്ലെങ്കിലും പോയിന്റ് പട്ടികയിൽ മുന്നിലെത്താൻ ശ്രമിക്കുന്ന ഇന്ത്യയ്ക്കും വിജയം അനിവാര്യമാണ് അഞ്ച് കളികളിൽ നിന്ന് ഇന്ത്യയ്ക്ക് ഒമ്പത് പോയിന്റുള്ളപ്പോൾ ആറ് കളികളിൽ നിന്ന് മൂന്ന് പോയിന്റ് മാത്രമാണ് വെസ്റ്റീന്റിസിന്റെ സമ്പാദ്യം ജയം മാത്രം ലക്ഷ്യമിട്ട് ഇരുടീമുകളും നേർക്കുനേർ വരുമ്പോൾ മത്സരം ആവേശം നൽകുമെന്നത് തീർച്ചയാണ് വൈകിട്ട് മൂന്നിന് മഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോഡിലാണ് മത്സരം ഇന്നലെ നടന്ന കളിയിൽ പാകിസ്ഥാൻ ആറ് വിക്കറ്റിന് ന്യൂസിലന്റിനെ തോൽപ്പിച്ചിരുന്നു

ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു